റഫാൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന രഹസ്യരേഖകൾ തെളിവായി സ്വീകരിക്കരുതെന്ന് കേന്ദ്ര ഗവ ആവശ്യം സുപ്രീം കോടതി തളളി പ്പുനഃപരിശോധനാ ഹർജി യിൽ കോടതി വാദം കേൾക്കും അന്തരിച്ച കേരളകോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം വിലാ പയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുപോയി കെഎസ്ആർടിസി എം പാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട ണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവ സുപ്രീംകോ ടതിയെ സമീപിക്കും സന്തോഷ്ട്രോഫി ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ മേഘാലയ് ഒഡീഷയെയും ഡൽഹി സർവ്വീസസിനെയും നേരിടും ലോക്സഭ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ

ആന്ധ്രപ്രദേശ് സിക്കിം അരുണാചൽപ്രദേശ് നിയമസഭാമ ണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും നാളെയാണ്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

ആറ് പേരാണ് മത്സര രംഗത്ത്

പട്ടിക വർഗ്ഗക്കാർക്കായി സംവരണം ചെയ്ത മണ്ഡലമാണ് ലക്ഷദ്വീപിലേത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടൂപ്പിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതകൾ വോട്ട് ചെയ്തത് ലക്ഷദ്വീപിലായിരുന്നു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അമേഠിയിൽ ഇന്ന് നാമനിർദേശ പത്രിക സമർപ്പിക്കും

കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജന റൽസെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാവും ബിജെപിയുടെ സ്മൃതി ഇറാനിയാണ് രാഹുലിനെതിരെ മത്സരി ക്കുന്നത് ഇവർ നാളെ നാമനിർദേശ പത്രിക സമർപ്പിക്കുമെന്നാ ണ് റിപ്പോർട്ട് കോൺഗ്രസ് നേതാവും യുപിഎ അധ്യക്ഷയുമായ സോണി യാഗാന്ധി നാളെ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നാമനിർദേശപത്രിക നൽകും

സ്ഥാനാർത്ഥി ബിജെപിയിലെ ദിനേശ് പ്രതാപ്സിംഗാണ്

തമിഴ്നാട്ടിലെ നാലും കർണാടകയിലെ ഒന്നും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കമ്മീഷൻ ഉപതെരഞ്ഞെ ടുപ്പ് പ്രഖ്യാപിച്ചു

വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കെതിരായ കൊലയാളി പരാമർശത്തിൽ ആർഎംപി നേതാവ് കെ കെ രമ ഇന്ന് കോഴിക്കോട്ട് ജില്ലാ കലക്ടർക്ക് മുമ്പാകെ ഹാജരാവും സിപിഐഎം സ്ഠ്സ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടൂപ്പ് കമ്മീഷന് നൽകിയ പരാ തിയെ തുടർന്നാണ് രമ ഹാജരാവുന്നത്

ജെ

ക്കെതിരായ പ്പോരാട്ടത്തെ ദുർബല പ്പെടുത്തുന്ന നിലപാടുകളാണ് കോൺഗ്രസ് രാജ്യത്താകമാനം സ്വീകരിക്കുന്നതെന്ന് സിപിഐ എം പോളിറ്റ്ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ട് പറഞ്ഞു കൊല്ലത്തെ എൽഡിഎഫ് സ്ഥാനാർഥിയുട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

യിലും ഡൽഹിയിലും ബംഗാളിലും ഉൾപ്പെടെ മതനിരപേക്ഷ കക്ഷികളെ ഒറ്റപ്പെടുത്തുകയും ബിജെപിയെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അവർ ആരോപിച്ചു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനാ യി സംഘടിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് ആരംഭിക്കും മൂ ന്നു ദിവസങ്ങളിലായി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളി ലേയും നാല് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തോൽപ്പാവക്കൂത്ത് പ്രദർ ശനം നടക്കും തോൽപ്പാവക്കൂത്തിലെ നൂൽപ്പാവക്കൂത്ത് നിഴൽ പ്പാവക്കൂത്ത് എന്നിവയാണ് പ്രദർശിപ്പിക്കുക പകൽ സമയങ്ങളിൽ നൂൽപ്പാവക്കൂത്തും രാത്രിയിൽ നിഴൽപ്പാവക്കൂത്തുമായി രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ടു വരെയാണ് പ്രദർശനം റഫാൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് ദി ഹിന്ദു പത്രം പുറത്തുവിട്ട രാജ്യരക്ഷാമന്ത്രാലയത്തിലെ രഹസ്യരേഖകൾ തെളി വായി സ്വീകരിക്കരുതെന്ന കേന്ദ്ര ഗവൺ മെന്റിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി രേഖകൾ തെളിവായി സ്വീകരിക്കാൻ കഴി യുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ചൻ ഗോഗോയ് ജസ്റ്റിസുമാ രായ എസ് കെ കൌൾ കെ എം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധിന്യായത്തിൽ വ്യക്തമാക്കി

ഇതിന്റെതിരെ സമർപ്പിച്ച റിവ്യൂ ഹർജിക്കൊപ്പമാണ് ഹിന്ദു ദിനിപത്രം പുറത്തുവിട്ട രേഖകളുടെ പകർപ്പുകൾ സുപ്രീംകോടതിയിൽ സ്മർപ്പിച്ചത് നിയമവിരുദ്ധമായി നേടിയ ഈ രേഖകൾ പരിഗണിക്കരുതെന്നും തള്ളിക്കളയണ മെന്നും കേന്ദ്ര ഗവൺമെന്റ് വാദത്തിനിടെ ആവശ്യപ്പെട്ടു ഇതാണ് കോടതി നിരസിച്ചത് പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്ന തിയ്യതി പിന്നീട് തീരുമാനിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു സുപ്രീംകോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു ഒട്ടുംവൈകാതെ സത്യം പുറത്തുവരുമെന്ന് പാർട്ടി മുഖ്യവക്താവ് രൺദീപ് സുർജേവാല ട്വിറ്ററിൽ അറിയിച്ചു നിയമതത്വം സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രിക്ക് ഒളി ച്ചിരിക്കാൻ ഔദ്യോഗിക രഹസ്യനിയമം ഇല്ലെന്നും അദ്ദേഹം പറ ഞ്ഞു കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ആർജെഡി അധൃക്ഷൻ ലാലുപ്രസാദ് നൽകിയ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തളളി ഈ കേസുകളിൽ ലാലുപ്രസാദിന് ജാമൃം അനുവദിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ചൻഗോഗോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്ത മാക്കി

കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കു മെന്നും സുപ്രീംകോടതി അറിയിച്ചു അന്തരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിക്ക് കേരളത്തിന്റെ ആദരാഞ്ജലി സംസ്ഥാന രാഷ്ട്രീയ ത്തിലെ അതികായനും മുൻമന്ത്രിയും നിയമസഭാംഗമെന്ന നില യിൽ നിരവധി റിക്കോർഡുകളുടെ ഉടമയുമായ മാണിക്ക് രാവിലെ കൊച്ചി വികാരനിർഭരമായ യാത്രയയപ്പ് നൽക്കി പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തല എം എൽഎ മാർ രാഷ്ട്രീയ പ്രവർത്ത കർ തുടങ്ങിയവർ ആശുപത്രിയിൽ പ്പൊതുദർശ്നത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രത്യേകം അല ങ്കരിച്ച കെഎസ്ആർടിസി ബസ്സിലാണ് മൃതദേഹം വിലാപയാത്ര യായി കോട്ടയത്തേക്ക് കൊണ്ടുപ്പോകുന്നത് വാഹനത്തെ പി ജെ ജോസഫ് അടക്കം നേതാക്കളും എംഎൽഎമാരും അനുഗ്മിക്കുന്നുണ്ട് വിലാപയാത്ര കടന്നുപോ കുന്ന വഴികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിടപറഞ്ഞ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഉച്ചകഴിഞ്ഞ് കോട്ട യത്ത് എത്തിക്കുന്ന മൃതദേഹം കേരള കോൺഗ്രസ് എം സംസ്ഥാനക്മ്മിറ്റി ഓഫീസിൽ അടുത്ത സഹപ്രവർത്തകർക്ക് അന്തിമോപചാര്ം അർപ്പിക്കാൻ അവസരം നൽകിയശേഷം തിരു നക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെയ്ക്കും വൈകിട്ട് വിലാപയാത്രയായി ജന്മനാടായ മരങ്ങാട്ട്പിള്ളിയിൽ എത്തിക്കും തുടർന്ന് പാലായിൽ പൊതുദർശനത്തിന് അവസരമൊരുക്കിയ ശേഷം ഭൌതികദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടു പോകും നാളെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് വീട്ടിൽ സംസ്കാര ശുശ്രൂ ഷകൾ ആരംഭിക്കും മൂന്ന് മണിക്ക് പാലാ കത്തീഡ്രൽ പളളി സെമിത്തേരിയിൽ പൂർണ്ണ ഔദ്യോഗികബഹുമതികളോടെ സംസ്കാരം നടക്കും കെഎസ്ആർടിസി എം പാനൽ ഡ്രൈവർമാരെ പിരിച്ച് വിട ണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

സുപ്രീംകോടതിയെ വസ്തുതകൾ ബോധിപ്പിക്കുമെന്നും ഗവ തന്നെ അപ്പീൽ നൽകണമോ എന്ന കാര്യം അഡ്വക്കറ്റ് ജനറലുമായി കൂടിയാലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലുധിയാനയിൽ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് മേഘാ ലയ ഒഡീഷയെയും ഡൽഹി സർവീസ്പസിനെയും നേരിടും

മറ്റൊരു കളിയിൽ രണ്ട് ഗ്നോൾ വീതം നേടി മഹാരാ ഷ്ട്രയും കർണാടകയും സമനിലയിൽ പിരിഞ്ഞു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇല വൻ പഞ്ചാബിനെ നേരിടും രാത്രി എട്ടിന് മുംബൈ വാങ്കഡെ സ്റ്റേഡി യത്തിലാണ് മത്സരം ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ഒന്നാം സ്ഥാനത്തെത്തി റിസർവ്ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചതിന്റെ ചുവട്പിടിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യബാങ്കായ എസ്ബിഐ പലി ശനിരക്ക് കുറ്ച്ചു

പുതുക്കിയ നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വരും നോട്ട് നിരോധനത്തിന്റെ മറവിൽ വിദേശത്ത് അച്ചടിച്ച വ്യാജ കറൻസികൾ കൊണ്ടുവരുന്നതിന് വ്യോമസേനാ വിമാനം ഉപയോ ഗിച്ചെന്ന കോൺഗ്രസ് ആരോപണം തെറ്റാണെന്ന് രാജ്യരക്ഷാ മന്ത്രാ ലയം ന്യൂഡൽഹിയിൽ വൃക്തമാക്കി നോട്ട് നിരോധനത്തിന് മുൻപോ നിരോധന കാലയളവിലോ അതിന് ശേഷമോ വ്യോമസേ നയുടെ ഒരു വിമാനവും വിദേശത്ത് പോയിട്ടില്ലെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

ജമ്മു കശ്മീരിൽ ഭീകരവാദ സംഘടനകൾക്കും വിഘടന ഗ്രൂ പ്പുകൾക്കും പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ജമ്മു കശ്മീർ ലിബറേഷൻഫ്രണ്ട് തലവൻ യാസിം മാലിക്കിനെ എൻഐ അറസ്റ്റ് ചെയ്തു മാലിക്കിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് എൻഐഎക്ക് ജമ്മു കശ്മീരിലെ പ്രത്യേക കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് ഇയാളെ ഇന്നലെ വൈകീട്ട് ഡൽഹിയിൽ കൊണ്ടുവന്നിരുന്നു പാലക്കാട് നഗരത്തിലെ മാലിനൃപ്ര്യശനം പരിഹരിക്കാൻ മന്ത്രി എ

ബാലന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും തീരുമാന മായില്ല മാലിന്യ കേന്ദ്രത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സം യുക്ത നിരീക്ഷണ സ്മിതി രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പിന് ശേ ഷം തദ്ദേശ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കാനുമാണ് തീരുമാനം